തോൽപ്പിച്ചു ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും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

ജമ്മുവിലെ അന്താരാഷ്ട അതിർത്തിക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുളളവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗം ലഭിക്കുന്നതിനും സംവരണം നൽകുന്നതാണ് ബില്ല്

ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇരു സഭകളും ഐക്യകണ്ഠേന തീരുമാനമെടുത്തത് പ്രശ്സനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

തീവ്രവാദത്തെ വെച്ചു പൊറുപ്പിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീരുമായി ബിന്യപ്പെട്ട് രണ്ട് സുപ്രധാന ബില്ലുകൾ പാസ്സാക്കാൻ സഹായിച്ചതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു

കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കമ്മിറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത്

ദേശീയ ദുരന്ത നിവാരണ സേനയുടെ യൂണ്ടിറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംഭവത്തിൽ ദുഖം രേഖ്പപ്പെടുത്തിയിട്ടുണ്ട്

കല്യാൺ മേഖലയിൽ മൂന്ന് പേരാണ് മരണമടഞ്ഞത്

മഹാരാഷ്ട്രയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

വോയ്സ് ശുദ്ധജല പരിപാലനത്തിനായുള്ള ബഹുജന പ്രസ്ഥാനം ശക്തിപ്പെടുത്താനുള്ള ഒരവസരവും പാഴാക്കുകയില്ലെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ജലസംരക്ഷണത്തിന്റെ പ്രയോജനത്തെപ്പറ്റി ജനങ്ങളിൽ വ്യാപകമായ അവബോധം വളർത്തും രാജ്യത്ത് ഭൂജലത്തിന്റെ അളവ് കുറയുന്നതിന്റെ അപകടത്തെപ്പറ്റിയും ജനങ്ങളിൽ വ്യക്തമായ ധാരണ ഉണ്ടാക്കണം

ജനകീയ മുന്നേറ്റത്തിലൂടെ ജലസംരക്ഷണവും കാര്യക്ഷമമായ ജലസേചനവും നടപ്പിലാക്കാൻ രാജ്യവ്യാപകമായി ബോധവത്കരണ പരിപാടികൾ നടത്തുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ജൽശക്തി അഭിയാൻ മഴവെള്ള സംഭരണം ഉൾപ്പെടെയുള്ള ജലസംരക്ഷണം പരമ്പരാഗത ജല സംഭരണികളുടെ നവീകരണം ജലത്തിന്റെ പുനരുപയോഗം കുഴൽ കിണർ നിറയ്ക്കൽ നീർത്തട വികസനം മരം നട്ടുപിടിപ്പിക്കൽ തുടങ്ങി അഞ്ച് മേഖലകൾക്കാണ് പദ്ധതി പ്ര്യാധാന്യം നൽകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മുന്തി ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലവസരം വർധിപ്പിക്കാൻ ഗവൺമെന്റ് നടപടികൾ എടുത്തിട്ടുണ്ട്

കേസ് പരിഗണിക്കുന്ന കാര്യത്തിൽ താമസിക്കാതെ തീരുമാനമെടുക്കുമെന്ന് ചീഫ് ജസ്റ്റിസ്രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ ബഞ്ച് അറിയിച്ചു

വോയ്സ് രാജ്യത്തെ എട്ട് സുപ്രധാന വ്യവസായ മേഖലകൾ ഗണ്യമായ വളർച്ച കൈവരിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറപ്പെടുവിച്ച വാർത്താകുറിപ്പിൽ വ്യക്തമാക്കി മേയ് മാസത്തെ വളർച്ച് സ്ഥിതി പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്

കൽക്കരി അസംസ്കൃത എണ്ണ പ്രകൃതി വാതകം എണ്ണ ശുദ്ധീകരണ ഉല്പന്നങ്ങൾ രാസവളം സിമന്റ് എന്നിവയാണ് ഉയർന്ന വളർച്ച നേടിയ മറ്റ് മേഖലകൾ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേരളാ മെഡിക്കൽപ്രവേശനത്തിൽ പ്രതിസന്ധി നിലനിൽക്കുകയാ ണെന്ന് ആരോപിച്ച് കൊണ്ടു വന്ന അടിയന്തരപ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്

ബി എസ് അലോട്ട്മെന്റ് നടക്കുമെന്നും മന്ത്രി കെ

കേരളത്തിൽ ജലവിഭവം സംരക്ഷിക്കുന്നതിനു്യോജ്യമായ സമഗ്രമായ ജലനയം ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ക്ലെകൃഷ്ണൻകുട്ടി പ്രളയാനന്തര സാഹചര്യവും നില്ലിലെ ജലലഭ്യതയും കണക്കിലെടുത്താകും നയരൂപീകരണം എന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു

ജല മലിനീകരണത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ച് പ്രതിരോധ മാർഗ്ഗങ്ങൾ ജല നയത്തിൽ ഉൾപ്പെടുത്തും

ചോക്സിയുടെ ആരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി അനുവദിച്ചത്

ആന്റിഗ്വയിൽ കഴിയുന്ന ചോക്സിയെ നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഹൈക്കോടതി വിധി തിരിച്ചടിയാകുമെന്ന് സൊളിസ്റ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു

പരിശീലന പറക്കലിനിടെയാണ് സംഭവം നെൽപ്പാടത്താണ് ഇന്ധന ടാങ്ക് പതിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണ്

ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നിനാണ് മൽസരം ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമിയിലെത്താം